ജെൻഡർ ഷോർട്ട് സ്റ്റേ ഹോം വൈകിട്ട് പ്രവർത്തനം തുടങ്ങും ഇന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ ആൻസി സോജന്

ഗംഗാനദിയുടെ ശുചീകരണവുമായിബന്ധപ്പെട്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി യോഗത്തിൽ വിലയിരുത്തും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് യോഗത്തിൽ പങ്കെടുക്കും

അടുത്ത മൂന്ന് പതിറ്റാ ണ്ടുകളോളം മികച്ച വളർച്ച കൈവരിക്കാൻ പരിഷ്ക്കരണം കൊണ്ട് സാധ്യമാകുമെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വളർച്ചാനിരക്കിലെ ഇപ്പോ ഴത്തെ കുറവ് താത്ക്കാലികം മാത്രമാണെന്ന് വൈകാതെ ശക്തമായ നിലയിലേക്ക് സമ്പദ്വ്യവസ്ഥ മാറുമെന്ന് അദ്ദേഹം വിലയിരുത്തി

തിരുവന ന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിപണികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ

ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറു ക്കാൻ സധൈരൃം മുന്നോട്ട് പദ്ധതി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു നിയമങ്ങളുടെ കുറവല്ല നയമില്ലായ് മയാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം കൂടുന്നതിന് കാരണമെന്നും അവർ വ്യക്തമാക്കി

വൈകിട്ട് മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും ലിംഗമാറ്റ ശസ്ത്ര ക്രിയയ്ക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർമാർക്കും അടി യന്തര സാഹചര്യങ്ങളിൽപ്പെടുന്ന ഈ വിഭാഗക്കാർക്കും ഹ്രസ്വ കാല താമസ സൌകര്യം ഷോർട്ട്സ്റ്റേ ഹോമിൽ ലഭ്യമാകും

കുറ്റം ചെയ്തവർക്കെതിരെ നട പടി വേണമെന്നും അദ്ദേഹം തിരുവല്ലയിൽ പറഞ്ഞു എറ ണാകുളം ജില്ലയിൽ റോഡിലെ കുഴികളടയ്ക്കാൻ ഒക്ടോബ റിൽ ഏഴ് കോടി രൂപ നല്കിയതായും മന്ത്രി വൃക്തമാക്കി

ജോസഫ് വിഭാഗം തൊടുപുഴയിലും ജോസ് കെ മാണി വിഭാഗം കോട്ടയത്തുമാണ് യോഗം ചേരുന്നത്

ഊർജ്ജ കാര്യ ക്ഷമതയെക്കുറിച്ചും ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചും ജന ങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ അവസാനവട്ട പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷായും വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദയും ഇന്ന് വിവിധ ഇടങ്ങളിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

വൈകീട്ട് അഞ്ചിന് കൊൽക്കത്തയി ലാണ് മത്സരം

മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

കാരശ്ശേരി സ്വദേശി റിനാസ് പെൺകു ട്ടി മരിക്കുന്നതിന്റെ തലേന്ന് കക്കാടംപൊയിലിൽ എത്തിയി രുന്നു എന്നാണ് വിവരം

എൽ ബി ഇ എം എൽ എന്നിവയുടെ സ്ഥകാര്യവത്കരണ നീക്കത്തി നെതിരെ സി ഐ ടി യു ഇന്ന് പാലക്കാട്ട് ദേശരക്ഷാ മാർച്ച് ന ടത്തും മാർച്ചും തുടർന്ന് നടക്കുന്ന ധർണ്ണയും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്യും

കെ ബാലൻ നിർവഹിക്കും പട്ടികവർഗ്ഗക്കാരുടെ സാമൂഹൃ സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ഓരോ കോളനിയ്ക്കും ഒരു കോടി വീതം ചെലവഴിക്കും

സി കെ ശശീന്ദ്രൻ എം

എ യുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെത്തുടർന്നാണ് തീരു മാനം

വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളും ഗവേഷകരും ഗ്രഹണം നിരീക്ഷിക്കാനെത്തും സൂര്യഗ്രഹണം വ്യക്തമായി കാണാവുന്ന ലോകത്തിലെ മൂന്ന് സ്ഥലങ്ങളിലൊ ന്നാണ് ചെറുവത്തൂർ

കോയമ്പത്തൂർ സ്വദേശി ഹർഷാ സ്വജാദാണ് മരിച്ചത്

വിവിധ സംസ്ഥാനങ്ങളിലെ സ്റ്റാളുകൾക്കൊപ്പം ആയിരത്തോളം കൃഷിക്കാരും മേളയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു വൈഗ പന്തലിന്റെ കാൽനാ ട്ടുകർമം തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കുകയായി രുന്നു മന്ത്രി സുസ്ഥിര കാർഷിക വികസനം കാർഷിക സംരം ഭകത്വത്തിലൂടെ എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് വൈഗയുടെ നാലാമത്തെ എഡിഷൻ സംഘടിപ്പിക്കുന്നത്

വിയ്യൂർ സെൻട്രൽ ജയിലിൽ ജയിൽക്ഷേമ ദിനാഘോഷങ്ങളുടെ സമാ പന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് പ്രോഗ്രാം ഓഫീസർമാർക്കും ജീവശാസ്ത്ര അധ്യാപകർക്കും പ്രഥമ ശുശ്രൂഷയിൽ പരിശ്രീലനം നൽകി വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് മുന്നോടി യായാണ് പരിശീലനം

അക്കാദമി കേരളത്തിൽ നിന്ന് മാ റ്റുന്നതിലൂടെ ആയിരം കോടിയിലേറെ രൂപ മുതൽമുടക്കുള്ള പദ്ധതിയാണ് ജില്ലയ്ക്ക് നഷ്ടമാകുന്നതെന്നും ഇത് പുനഃപരി ശോധിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു

മിനിമം വേതനവും അർഹതപ്പെട്ട ആനുകൂല്യ ങ്ങളും ലഭിക്കു ന്നു ണ്ടെന്ന് ഉറ പ്പാക്കണ മെന്ന മന്ത്രി ടി പി രാമകൃഷ്ണന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി നിയ മലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് കർശന നിർദ്ദേശം നൽകി യതായും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ലേബർ കമ്മീ ഷണർ സി